മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും നിയമസഭാ തെര ഞ്ഞെടുപ്പിന്റെ പ്രചാരണവും ഇന്ന് സമാപ്പിക്കും

ജി സർവകലാശാലയിലെ മാർക്ക് ദാന പ്രിവാദവുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ ടി ജലീലിനെ മാറ്റി നിർത്തി ജുഡീ ഷ്യൽ അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല

മരടിൽ അനധികൃത ഫ്ളാറ്റ് പൊളിക്കുന്നതിന് പ്രാഥമിക നട പടി ആരംഭിച്ചു ദക്ഷിണാഫ്രിക്കക്കെതിരായ അവസാന ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് മോശം തുടക്കം

വൈകീട്ട് ആറിനാണ് മഞ്ചേശ്വരം എറണാകുളം കോന്നി അരൂർ വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലെ പ്രചാരണത്തിന്റെ കലാ ശക്കൊട്ട് സ്ഥാനാർത്ഥികൾ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് പ്രധാനമായും പ്രചാരണം നടത്തുന്നത് പ്രമുഖരെ അണി നിരത്തി റോഡ്ഷോകളോടെ പ്രചാരണം അവസാനിപ്പിക്കും നാളെ നിശബ്ദ പ്രചാരണം കഴിഞ്ഞ് മറ്റന്നാളാണ് വോട്ടെടുപ്പ് അഞ്ച് മണ്ഡലങ്ങളിലും അടുത്ത കാലത്തൊന്നും കാണാത്ത വിധം ജാതി കേന്ദ്രീകൃത ചർച്ചകളായിരുന്നു പ്രചാരണ രംഗത്ത് സജീവമായിരുന്നത് വോട്ട് കച്ചവടം മാർക്ക്ദാനം തുടങ്ങി നിര വധി വിഷയങ്ങൾ പ്രചാരണ വേദികളിൽ ചർച്ചാ വിഷയമായി മഞ്ചേശ്വരം ഒഴികെ മണ്ഡലങ്ങളിൽ എം

എമാർ രാജിവെച്ച് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതാണ് ഉപതെരഞ്ഞെടു പ്പിന് വഴിയൊരുക്കിയത് മഞ്ചേശ്വരത്ത് എം

എയായിരുന്ന പി ബി അബ്ദുറസാഖിന്റെ മരണമാണ് ഉപതെരഞ്ഞെടുപ്പിന് കാര ണമായത് മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും നിയമസഭാ തെരഞ്ഞെ ടുപ്പും മറ്റന്നാൾ നടക്കും

എല്ലായിടങ്ങളിലെയും ഫലം വ്യാഴാഴ്ച അറിയാം ഉപതെരഞ്ഞെടുപ്പിൽ പരാജയം ഉറപ്പായതോടെ എൽ ഡി എഫ് അനാവശ്യ അവകാശങ്ങളുമായി രംഗത്തു വരികയാണെന്ന് പ്രതി പക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു തെരഞ്ഞെടു പ്പിൽ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജനങ്ങൾ വിധി എഴുതുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു ഗവൺമെന്റ് ശാസ്ത്രീയമായാണ് അഴിമതി നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു വസ്തുതാപരമായ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഗവൺമെന്റിനോ മുഖ്യമന്ത്രിക്കോ കഴിയുന്നി ല്ലെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ എൻ

എസ് നിലപാട് തിരി ച്ചടിയാകുമെന്ന് കരുതുന്നില്ലെന്ന് ബി

പി സംസ്ഥാന പ്രസി ഡന്റ് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു കുമ്മനം രാജശേഖരൻ മത്സര രംഗത്ത് ഇല്ലാത്തതിനെ ചൊല്ലി പാർട്ടിയിൽ ആശയക്കുഴ പ്പമില്ലെന്നും അദ്ദേഹം വാർത്താ ചാനലിനോട് വ്യക്തമാക്കി ഉപതെരഞ്ഞെടുപ്പിൽ എൻ എസ് എസിന്റെ ഇപ്പോഴത്തെ നിലപാട് സംഘടന അടിസ്ഥാനത്തിൽ ഉള്ള തീരുമാനമാണെന്ന് കരുതു ന്നില്ലെന്ന് മന്ത്രി ഇ

എഫ് എൻ

എസിനെ തെരഞ്ഞെടുപ്പിൽ വലിച്ചിഴക്കുകയാണെന്നും അദ്ദേഹം വാർത്താ ചാനലിനോട് പറഞ്ഞു ജാതിയും മതവും പറഞ്ഞ് എൽ

എഫ് വോട്ട് തേടില്ലെന്ന് മന്ത്രി കെ കെ ശൈലജ പറഞ്ഞു ഇക്കാര്യത്തിൽ എൻ

എസിന്റെ ആഹ്വാനം സമുദായ അംഗങ്ങൾ തള്ളുമെന്നും മന്ത്രി വാർത്താ ചാനലിനോട് വ്യക്തമാക്കി

എസ് അച്യുതാനന്ദനെതിരെ വിവാദ പരാമർശം നടത്തിയതിന് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ എം പിക്കെതിരെ ഡി ജി

മലപ്പുറം ചേലേമ്പ്ര സ്വദേശിയാണ് പരാതി നൽകി യത് മഹാത്മാഗാന്ധി സർവകലാശാലയിലെ മാർക്ക് ദാന വിവാദവു മായി ബന്ധപ്പെട്ട് മന്ത്രി കെ ടി ജലീലിനെ മാറ്റി നിർത്തി ജുഡീ ഷ്യൽ അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു വൈസ് ചാൻസിലറെയും സിൻഡി ക്കേറ്റിനെയും പുറത്താക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

ജലീലിനെതിരെ താൻ ഉന്നയിച്ച കാര്യങ്ങൾ ശരിവെക്കുന്നതാണ് ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വൈസ് ചെയർമാൻ ഡോ രാ ജൻ ഗുരുക്കളുടെ പ്രസ്താവനയെന്നും ഇനി മന്ത്രിയായി തുട രാൻ ജലീലിന് കഴിയില്ലെന്നും ചെന്നിത്തല പറഞ്ഞു

താൻ ഉന്ന യിച്ച ഒരു കാര്യത്തിനും മന്ത്രിക്ക് മറുപടിയില്ലെന്നും ചെന്നിത്തല ആരോപിച്ചു മാർക്ക് ദാന വിവാദത്തിൽ മന്ത്രി ജലീൽ രാജിവെക്കണമെന്നാവ ശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ മലപ്പുറം തവനൂരിലെ മന്ത്രി യുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി

സി സി പ്രസിഡന്റ് വി

മാർച്ച് പൊലീസ് തടഞ്ഞു മഹാത്മാഗാന്ധി സർവകലാശാലയിലെ മാർക്കു ദാന വിപാദവുമായി ബന്ധപ്പെട്ട് സിൻഡിക്കേറ്റംഗം ഡോ

പ്രഗാഷിന്റെ കോട്ടയത്തെ വീട്ടിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി നാലാം സെമസ്റ്റർ എം കോം പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ പരീക്ഷയുടെ ചുമതലയുണ്ടായിരുന്ന സിൻഡിക്കേറ്റംഗം ഡോ പ്രഗാഷിന് കൈമാറണമെന്ന വൈസ് ചാൻസലറുടെ ഉത്തരവ് വിവാദമായിരുന്നു

എസ് മാത്യു മൂന്നാംപ്രതി പ്രജുകുമാർ എന്നിവരെ റിമാൻഡ് ചെയ്തത് റിമാൻഡ് കാലാവധി തീർന്നതിനെ തുടർന്ന് ഇന്ന് രാവിലെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയാണ് കോടതി വീണ്ടും റിമാൻഡ് നീട്ടിയത് ജാമ്യപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തു മരടിൽ അനധികൃത ഫ്ളാറ്റ് പൊളിക്കുന്നതിന് പ്രാഥമിക നടപടി ആരംഭിച്ചു

അനധികൃത നിർമ്മാണത്തിൽ സുപ്രീംകോ ടതി വിധിയെ തുടർന്നാണ് നടപടി റാഞ്ചിയിൽ ദക്ഷിണാഫ്രിക്കക്കെതിരായ മൂന്നാമത്തേയും അവ സാനത്തേയും ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് മോശം തുടക്കം ടോസ് നേടിയ ഇന്ത്യ ബാറ്റിങ് തെരഞ്ഞെടുക്കുകയായിരുന്നു

ഐഎസ്എൽ ആറാം സീസണ് നാളെ കൊച്ചിയിൽ കിക്കോഫ് വൈകീട്ട് ഏഴരക്ക് കേരളാ ബ്ലാസ്റ്റേഴ്സും കൊൽക്കത്ത എടി കെയും തമ്മിലാണ് ഉദ്ഘാടന മത്സരം ബിസിസിഐ നിയുക്ത പ്രസിഡന്റ് സൌരവ് ഗാംഗുലിയും ബോളിവുഡ് താരങ്ങളും മറ്റ് പ്രമുഖരും ഐഎസ്എൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളാവും സംസ്ഥാനത്ത് തുലാവർഷം ശക്തമായി ഇന്നും ഉച്ചകഴിഞ്ഞ് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് തിരുവനന്തപുരം കാലാ വസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് കനത്ത മഴയ്ക്ക് സാധൃത കണക്കിലെടുത്ത് എല്ലാ ജില്ലകളിലും ലക്ഷ ദ്ധീപിലും ഇന്ന് യെലോ അലർട്ട് പ്രഖ്യാപിച്ചു നാളെ കാസർകോ ടൊഴികെ ജില്ലകളിലും ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കാലാ വസ്ഥാ വിലയിരുത്തൽ അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂന മർദ്ദത്തെ തുടർന്ന് അടുത്ത മൂന്ന് ദിവസം മഴ കനക്കാനാണ് സാന്യത

ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാ രണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി

കേരള ലക്ഷദ്ധീപ് കർണാടക തീരങ്ങളിൽ നിന്ന് കടലിൽ മീൻപിടിക്കാൻ പോകരുതെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി

തുടർച്ചയായി രണ്ട് വർഷങ്ങളിലുണ്ടായ പ്രളയത്തിന്റെ പശ്ചാത്ത ലത്തിൽ തൃശൂർ ജില്ലയിൽ ദുരന്ത നിവാരണ പദ്ധതി പുതുക്കു ന്നു ഇതിനായി ജില്ലാ കലക്ടർ അധ്യക്ഷനായ ഉപദേശക കമ്മിറ്റി രൂപീകരിച്ചു

വി ചിദംബരേഷ് അറിയിച്ചു പുതുതായി അനുവദിച്ച താമരശേരി മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മോട്ടോർ ആക്സിഡന്റ് ട്രിബൂണൽ ക്യാംപ് പുനസ്ഥാപിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു താമരശേരിയിൽ രണ്ട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതികളാണ് പ്രവർത്തിക്കുന്നത് ഇതിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ട് ആണ് മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയായി മാറ്റുന്നത്

മുൻ ഡി

ആർ രാജീവൻ അന്തരിച്ചു രോഗബാധയെ തുടർന്ന് എറണാകുളം കാക്കനാട് ഇടച്ചിറയിലെ വസതിയിൽ രാവിലെയായിരുന്നു അന്ത്യം

കോഴിക്കോട് തിരുവന ന്തപുരം എന്നിവിടങ്ങളിൽ പൊലിസ് കമ്മീഷണറായും ദക്ഷിണ മേഖല ഐ ജിയായും എക്സൈസ് കമ്മീഷണറായും പ്രവർത്തി ച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജീവന്റെ നിര്യാണ ത്തിൽ അനുശോചിച്ചു എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ലോഡ്ജിൽ അമ്മയെയും രണ്ട് മക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തി ബാംഗ്ലൂരിൽ താമസക്കാരായ രാധാമണി മക്കളായ സുരേഷ്കുമാർ സന്തോഷ്കുമാർ എന്നിവരാണ് മരിച്ചത് ചികി ത്സക്കായാണ് ഇവർ കൊച്ചിയിലെത്തിയതെന്നാണ് റിപ്പോർട്ട്

ചേറ്റുവ ചുള്ളിപ്പടി സ്വദേശി സുബിതയാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന യുവതിക്ക് പരിക്കേറ്റു മലപ്പുറം ജില്ലയിലെ ആദ്യ ക്ഷീരഗ്രാമം പദ്ധതിക്ക് ആനക്കയം പ ഞ്ചായത്തിലെ പന്തല്ലൂരിൽ തുടക്കമായി ഒന്നരക്കോടി രൂപ ചെ ലവ് വരുന്ന പദ്ധതിക്കായി ഗുണഭോക്താക്കളിൽ നിന്ന് അപേ ക്ഷ സ്വീകരിച്ചു തുടങ്ങി

കണ്ണൂർ ജില്ലയിലെ എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും കുടും ബശ്രീയുടെ കഫേ ശ്രീ ഔട്ലെറ്റുകൾ സ്ഥാപിക്കാൻ ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചു സ്കൂൾ ഇടവേളകളിൽ വിദ്യാർത്ഥി കൾ പുറത്ത്പോകുന്നത് ഒഴിവാക്കാൻ ഇതിലൂടെ സാധിക്കുമെന്ന വിലയിരുത്തലോടെയാണ് നടപടി

കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ സാഹിത്യ സംവാദവും ശിൽപശാലയും സാഹിത്യ അക്കാദമി സെക്രട്ടറി കെ പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു കാക്കനാടൻ അനുസ്മരണ സമ്മേളനം വൈകിട്ട് സാഹിത്യകാരൻ എം മുകുന്ദൻ ഉദ്ഘാടനം ചെയ്യും